മികച്ച പാർലമെന്റ് അംഗങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്പുരസ്ക്കാരങ്ങൾ വിതരണം ചെയ്തു കൂടുതൽ വിവരങ്ങളുമായി പ്രിയ വോയ്സ് പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങിലാണ് രാഷ്ട്രപതി പുരസ്ക്കാരങ്ങൾ വിതരണം ചെയ്തത്

പാർലമെന്റംഗങ്ങൾ ജനപ്രതിനിധികൾ മാത്രമല്ല മറിച്ച് ഭരണഘടനയുടെ കാവൽക്കാരണെന്ന് രാഷ്ട്രപതി ചടങ്ങിൽ പറഞ്ഞു ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷം ഗവൺമെന്റുകളെ കൂടുതൽ ഉത്തരവാദിത്വത്തിലേക്ക് നയിക്കുമെന്ന് രാജ്യസ്ഭാ അധ്യക്ഷൻ എം

പാർലമെന്റിന്റെ നടപടികൾ തടസ്സ്ക്കപ്പെടുന്ന്ത് രാജ്യത്തിന്റെ വികസനത്തിന് വൻനഷ്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര് മോദി ചടങ്ങിൽ പറഞ്ഞു

ബി ഐ ബാങ്കിനും ഏറ്റെടുക്കൽ ഒരുപോലെ പ്രയോജനം ചെയ്യുമെന്ന് കേന്ദ്രഗവൺമെന്റ് പ്രസ്താവനയിൽ അറിയിച്ചു മ്യൂചൽ ഫണ്ട് ഭവനവായ്പാ മേഖലകളിൽ എൽ ഐ സി യ്ക്ക് കൂടുതൽ പ്രവർത്തനശേഷി നേടാൻ ഇത് വഴിയൊരുക്കും

ഐ സി ഏജന്റുമാരുടെ സേവനം പ്രയോജനപ്പെടുത്താൻ ഐ

ബി

രാജ്യ താത്പര്യവും സാമൂഹിക നീതിയും മുൻനിർത്തി കൊണ്ടു വരുന്ന ബില്ലിനെ പ്രതിപക്ഷം പിന്തുണയ്ക്കണമെന്ന് പാർലമെന്റിന് പുറത്ത് മന്ത്രി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ദീർഘ കാലമായുള്ള ആവശ്യമാണ് ഒ ബി സി കമ്മീഷന് ഭരണ ഘടന പദവി നൽകണമെന്നുള്ളത് ബിൽ ഐക്യകണ്ഠേന പാസ്സാക്കിയാൽ സാമൂഹിക നീതി നടപ്പാക്കുന്നതിൽ വലിയൊരു ചുവടു വെയ്പ്പായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

പിന്നാക്ക സമുദായ കമ്മീഷന് ഭരണഘടന പദവി നൽകുന്ന ബിൽ ദേശീയ മെഡിക്കൽ കമ്മീഷൻ ബിൽ എന്നിവ ഇന്ന് സഭ പരിഗണിക്കുന്നുണ്ട്

മാർ പാർലമെന്റ് ഹൌസ് കോപ്ലക്സിൽ പ്പക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധം നടത്തി വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചതിന് പുറമെ ഇതുമായി ബന്ധപ്പെട്ട് രൂാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മറ്റ് കേന്ദ്ര മൃന്തിമാർ എന്നിവരുമായി പ്രത്യേക ചർച്ച നടത്തിയതായും ടി ഡി

ആവശ്യം വന്നാൽ സൂപ്രീം കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി

കഴിഞ്ഞ നാലു വർഷത്തിൽ ഒരു കോടി ഏഴ് ലക്ഷം ഗ്രാമീണ് ഭവനങ്ങൾ നിർമ്മിച്ച് നൽകിയതായി ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു

ഇന്തോ ജർമ്മൻ ഉഭയകക്ഷി വികസനത്തിന്റെ ഭാഗമായാണ് കരാറിൽ ഒപ്പു വച്ചത് ധനകാര്യമന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി സമീർ കുമാർ ഖാരെയും ഇന്ത്യയിലെ ജർമ്മൻ അംബാസിഡർ മാർട്ടിൻ നെയുമാണ് ന്യൂഡൽഹിയിൽ കരാറിൽ ഒപ്പുവച്ചത്

കേന്ദ്ര മന്ത്രി ഗിരിരാജ് സിംഗ് രാജ്യസഭയിൽ എഴുതി നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം അറിയിച്ചത്

സോളാർ ചർക്ക യൂണിറ്റുകൾ വില്ലേജുകളിലാണ് സ്ഥാപിക്കുന്നത്

കസാഖിസ്ഥാൻ കിർഗ്ഗിസ്ഫാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ശ്രീമതി സുഷമ സ്വർ ാജ് സന്ദർശിക്കുന്നത്

പോയ്സ് കസാഖിസ്ഥാനുമായി ഉഭയുകുക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വിദേശകാര്യ മന്ത്രി ഉന്നത നേതാക്കളുമായി ചർച്ച ചെയ്യും ഇന്ത്യയും കസാഖിസ്ഥാനും തമ്മിൽ തന്ത്രപരമായ സഹകരമാണ് നിലവിലുള്ളത് കസാഖിസ്ഥാൻ സന്ദർശനത്തെ തുടർന്ന് വിദേശ കാര്യ മന്ത്രി കിർഗിസ്ഥാനിലേക്ക് പുറപ്പെടും ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിൽ വിവിധ മേഖലകളിൽ ശക്തമായ സഹകരണമാണുള്ളത് നാലാം തീയതി വിദേശ കാര്യമന്ത്രി ഉസ്ബെക്കിസ്ഥാനിലെത്തും

വിദേശകാര്യ മന്ത്രിയുടെ ഈ മൂന്ന് രാജ്യങ്ങളിലേയ്ക്കുമുള്ള ആദ്യ സന്ദർശനമാണിത്

കഴിഞ്ഞ മൂന്നു മണിക്കൂറായി ജലനിരപ്പിൽ മാറ്റമുണ്ടായിട്ടില്ലെന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡാം തുറക്കേണ്ടതില്ലെന്നും കളക്ട്രേറ്റിൽ ചേർന്ന അവലോകനയോഗത്തിൽ മന്ത്രി എം

ആഭ്യന്തരവകുപ്പിലെ സെക്രട്ടറി ധർമ റെഡ്സിയുടെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘമാണ് എത്തുന്നത് ഏഴാം തീയതി കൊച്ചിയിലെത്തുന്ന സംഘം എട്ടാം തീയതി കുട്ടനാട് ആലപ്പുഴ എന്നിവിടങ്ങളിൽ സന്ദർശിക്കും അതിനു ശേഷം ഒൻപതാം തീയതി മുഖ്യമന്ത്രിയുമായും റവന്യൂ മന്ത്രിയുമായും സംഘം കൂടിക്കാഴ്ച നടത്തും മുഖ്യമന്ത്രിയുമായുള്ളൂ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കോട്ടയം പത്തനംതിട്ട മേഖലകളിൽ സന്ദർശനം നടത്തും കേരളത്തിലെ മഴക്കെടുതിയും പ്രശ്നങ്ങളും് വിലയിരുത്താൻ കേന്ദ്രസംഘത്തെ അയയ്ക്കുമെന്ന് ക്കേന്ദ് ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു കേരളം സന്ദർശിച്ചപ്പോൾ ഉപ്പ് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രസ്ഥംഘം ്എത്തുന്നത്

അഞ്ച് ജില്ലകൾ പ്രളയക്കെടുതിയിലാണ്

വാഹന ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ്

സംസ്ഥാനത്ത് വ്യാപകമായുണ്ടായ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും കൃഷിയ്ക്കും കന്നുകാലുകൾക്കും വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് റോഡ് ഗതാഗത ബന്ധത്തേയും തുടർച്ചയായി പെയ്യുന്ന മഴ സാരമായി ബാധിച്ചിരിക്കുകയാണ് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി നെയ്ഫ്യൂ റിയോ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്ഥിതിഗതികളെ കുറിച്ച് സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട് ആരാഞ്ഞു

എ

ഇവരെ സഹായിക്കുവാനായി ഇന്ത്യൻ കോൺസുലേറ്റ് മൂന്ന് ഉദ്യോഗസ്ഥരെ ദുബായ് ഇമിഗ്രേഷൻ ഓഫീസിൽ നിയമിച്ചിട്ടുള്ളതായി ഗവൺമെന്റ് അറിയിച്ചു

കരുണാനിധിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയുണ്ടെന്നും ഉടൻ തന്നെ അദ്ദേഹം കരുത്തനായി ജീവിതത്തിലേക്ക് മടങ്ങി പ്പരുമെന്നും സന്ദർശനത്തിനുശേഷം ശ്രീ

ഡി എഫ് ഉന്നതാധികാര സമിതിയിൽ നിന്ന് മുൻ കെ

സി സി അദ്ധ്യക്ഷൻ വി

സി

അതേസമയം രാജിവെക്കാനുണ്ടായ സാഹചര്യമെന്താണെന്നും കാരണമെന്താണെന്നും സുധീരൻ ഇ മെയിലിൽ സൂചിപ്പിച്ചിട്ടില്ല

ഇന്ത്യൻ സ്പിന്നർ രവിചന്ദ്രൻ അശ്വിൻ നാല് വിക്കറ്റ് നേടി

അഞ്ച് മൽസര പരമ്പരകളിലെ ആദ്യ മൽസരമാണിത്